നിയന്ത്രണങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാൻ നടപടി കർശനമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ത മുഖ്യമന്ത്രിയുടെ തദ്ദേശറോഡ് പുനരുദ്ധാരണ പദ്ധതി വൈകീട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും

വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്

ഈ സോണുകളിൽ നിയന്ത്രണങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാൻ പൊലിസ് നടപടി കർശനമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്വാറന്റീൻ ലംഘിച്ച് ചിലരെങ്കിലും പുറത്തിറങ്ങുന്നുണ്ടെന്നും ശാരീരിക അകലം പാലിക്കാതിരിക്കുന്നതും സമ്പർക്കവിലക്ക് ലംഘിക്കുന്നതും ഉൾപ്പെടെ സംഭവങ്ങൾ രോഗവ്യാപന തോത് വർധിപ്പിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തരം കാര്യങ്ങളിൽ ഇനി പൊലീസ് നിയന്ത്രണം ഉണ്ടാകും കൂടുതൽ വിവരങ്ങളുമായി ജഷിത കുമാരി

പ്രൈമറി സെക്കന്ററി കോണ്ടാക്ടുകൾ കണ്ടെത്തി അവരെ ആശുപത്രിയിലേക്കോ ക്വാറന്റീൻ കേന്ദ്രങ്ങളിലേക്കോ മാറ്റുന്നതിന് പൊലിസ് നേരിട്ട് ഇടപെടും കോണ്ടാക്ട് ട്രേസിങ്ങിനായി ഓരോ പൊലിസ് സ്റ്റേഷനിലും എസ്

നിലവിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ തയാറാക്കുന്ന സമ്പർക്ക പട്ടിക ഇനി മുതൽ പൊലീസാകും തയാറാക്കുക

കണ്ടെയിൻമെന്റ് സോണുകളിലേക്കോ അവിടെ നിന്ന് പുറത്തേക്കോ പോകാൻ അനുവദിക്കില്ലെന്നും അവശ്യ സാധനങ്ങൾ വീട്ടിലെത്തിക്കാൻ സംവിധാനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി രുഭ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മറ്റു ഗവൺമെന്റ് ജീവനക്കാരെയും വിന്യസിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ കലക്ടർമാർക്ക് നിർദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു രുമ കോവിഡ് രോഗം ബാധിച്ചവരുടെ കോൺടാക്റ്റ് ട്രേസിങിനായി എല്ലാ പൊലീസ് സ്റ്റേഷനുകളിലും ഒരു സബ് ഇൻസ്പെക്റ്ററുടെ നേതൃത്വത്തിൽ മൂന്നു പോലീസുകാർ അടങ്ങുന്ന പ്രത്യേകസംഘത്തിന് രൂപം നൽകി സംസ്ഥാന പോലീസ് മേധാവി ലോക് നാഥ് ബെഹ്റ നിർദ്ദേശം പുറപ്പെടുവിച്ചു കണ്ടെയിൻമെന്റ് സോണിലെ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കാൻ മോട്ടോർ സൈക്കിൾ ബ്രിഗേഡിനെ നിയോഗിക്കും കണ്ടെയിൻമെന്റ് സോൺ അല്ലാത്ത പ്രദേശങ്ങളിൽ വാഹനപരിശോധനയ്ക്കായി ബാരിക്കേഡുകൾ സ്ഥാപിക്കും

ഒരേ റിസോർട്ടിലെ ജീവനക്കാരായ നാലു പേർ ഉൾപ്പെടെ കുമരകത്തെ ഏഴു പേരും ഇതിൽപെടുന്നു

രോഗവ്യാപനം അതിരൂക്ഷമായതിനാലാണ് കൊണ്ടോട്ടി താലൂക്ക് കണ്ടെയിൻമെന്റ് സോണാക്കിയതെന്നും ദിനംപ്രതി രോഗികൾ വർധിക്കുന്നതിനാൽ താലൂക്കിൽ ഭീതി വിട്ടൊഴിയുന്നില്ലെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു

ദേദ രാജ്യത്ത് ജിമ്മുകളും യോഗ കേന്ദ്രങ്ങളും നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കുന്നതിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുതിയ മാർഗനിർദേശം പുറത്തിറക്കി

എന്നാൽ കണ്ടെയിൻമെന്റ് സോണുകളിൽ യോഗ കേന്ദ്രങ്ങളും ജിമ്മുകളും തുറക്കാൻ പാടില്ല

രേര രാമക്ഷേത്ര നിർമ്മാണത്തിന് മുന്നോടിയായി അയോധ്യയിൽ നാളെ നടക്കുന്ന ഭൂമി പൂജയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംബന്ധിക്കും ഭൂമി പൂജയ്ക്ക് മുന്നോടിയായി മൂന്നു ദിവസത്തെ പ്രത്യേക ചടങ്ങുകൾക്ക് ഗൌരി ഗണേഷ പൂജയോടെ ഇന്നലെ തുടക്കമായി കാശിയിലേയും അയോധ്യയിലേയും സന്യാസി ശ്രേഷ്ഠരാണ് പൂജകൾ നടത്തുന്നത്

ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ അതി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെയും കാസർകോട് ജില്ലയിൽ വ്യാഴാഴ്ച വരെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടായിരിക്കും

മലയോര മേഖലയിലേക്ക് രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ശക്തമായ കടലാക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ തീരദേശ വാസികൾ ജാഗ്രതപാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ദേദ മഴ ശക്തമാകുന്നതു കണക്കിലെടുത്ത് ഏതു സാഹചര്യവും നേരിടാൻ ഗവ

മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപാർപ്പിക്കാൻ ജില്ലാ അധികൃതർക്ക് നിർദേശം നൽകിയതായും മുഖ്യമന്ത്രി പറഞ്ഞു

കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരിതമേഖലകളിലുള്ളവരെ അടിയന്തിരമായി മാറ്റിപ്പാർപ്പിക്കുമെന്ന് ജില്ലാ കലക്ടർ എച്ച്

ദരദ കൊല്ലം ജില്ലയിൽ വള്ളങ്ങൾക്ക് നാളെ മുതലും ബോട്ടുകൾക്ക് ഈ മാസം പത്ത് മുതലും മത്സ്യബന്ധനത്തിന് പോകാൻ അനുമതി നൽകുമെന്ന് ജില്ലാ കലക്ടർ ബി

നീണ്ടകര ശക്തികുളങ്ങര വാടി തങ്കശേരി ഹാർബറുകളിലെ മത്സ്യത്തൊഴിലാളി ബോട്ട് ഓണേഴ്സ് സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്

രുമ സ്വാതന്ത്ര്യസമര സേനാനിയും ഐ

എം അംഗവുമായിരുന്ന പ്രാക്കുളം പങ്കുപ്പിള്ള കൊല്ലത്ത് അന്തരിച്ചു

പ്രാക്കുളം പങ്കുപ്പിള്ളയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയും അനുശോചിച്ചു രേര കാസർക്കോട്ട് ഒരു കുടുംബത്തിലെ നാലു പേരെ ബന്ധുവായ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി

രമ പാലക്കാട് കഞ്ചിക്കോട് റെയിൽവേ ട്രാക്കിൽ മൂന്ന് അതിഥി തൊഴിലാളികളെ ട്രെയിൻതട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി ജാർഖണ്ഡ് പലാമു ജില്ലയിലെ വിശ്വകർമ്മ അരവിന്ദ്കുമാർ ഹരിയോം കുനാൽ എന്നിവരാണ് മരിച്ചത് രുമ ആലുവയിൽ നാണയം വിഴുങ്ങിയതുമായി ബന്ധപ്പെട്ട് മൂന്നു വയസുകാരൻ മരിച്ച സംഭവത്തിൽ കൃത്യമായ നിഗമനത്തിലെത്താൻ ആന്തരികാവയവങ്ങൾ രാസ പരിശോധനയ്ക്ക് അയച്ചു

നാണയം വിഴുങ്ങിയതുമൂലമല്ല മരണം എന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം

ഈ മാസത്തെ റേഷൻ വിതരണത്തിന് ഇ പോസ് മെഷീനിൽ സാങ്കേതിക ക്രമീകരണങ്ങൾ വരുത്തേണ്ട സാഹചര്യത്തിലാണിത്

ഈ മാസത്തെ റേഷൻ വിതരണം നാളെ ആരംഭിക്കും രുമ കോവിഡ് വ്യാപനം രൂക്ഷമാവുകയും കോഴിക്കോട് ജില്ലയിലെ നിരവധി സ്ഥലങ്ങൾ കണ്ടെയ്മെന്റ് സോണിലുമായ സാഹചര്യത്തിൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം കോഴിക്കോട് ജില്ലാ കലക്ടർ ഏകീകരിച്ചു